പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ന് തമോനാഷ് ഘോഷ്ട് കോവിഡ് ബാധിച്ച് മരിച്ചു

ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തി

സ്ഥിരാംഗത്വം ലഭിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് റഷ്യൂ

കൂടുതൽ വിവരങ്ങളുമായി ജയലക്ഷ്മി

ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന് രോഗബാധാ നിരക്കാണിത്

ഒരു ദിപ്പിസ്തെ ഏറ്റവും ഉയർന്ന പരിശോധനാ നിരക്കാണിത്

ഛത്തർപൂരിലെ രാധാ സ്വാമി ബീസ് കോവിഡ് കെയർ സെന്ററിൽ പതിനായിരം കിടക്കകൾ കൂടി മറ്റന്നാളോടെ സജ്ജമാകും ഈ കോവിഡ് സെന്ററിന്റെ നടത്തിപ്പിനായി ഐ

ആർ ഡി ഒയുടെയും ടാറ്റ ട്രസ്റ്റിന്റെയും സഹായത്തോടെയാണ് ഇത് നിർമിക്കുന്നത്

അമിത് ഷാ വ്യക്തമാക്കി

രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ ഡൽഹി രണ്ടാം സ്ഥാനത്താണുള്ളത്

എ തമോനാഷ് ഘോഷ് കോവിഡ് ബാധിച്ച് മരിച്ചു

കൊൽക്കത്തയിലെ സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഘോഷിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

കോവിഡ് കേസുകളുടെ എണ്ണം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ നീക്കം

ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഈ നടപടി അവശൃസാധനങ്ങൾ വിൽക്കുന്ന കടകളും പെട്രോൾ പമ്പുകളും ഉച്ചയ്ക്ക് രണ്ട് മണി വരെ മാത്രമാകും തുറന്ന് പ്രവർത്തിക്കുക

കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലാണ് നടപടി

ഇവിടെ ആകെ രോഗബാധിതരുടെ എണ്ണം രോഗബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും വൻവർദ്ധനയാണുണ്ടാകുന്നത്

റഷ്യയിൽ രോഗബാധിതരുട്ടി എണ്ണം ആറ് ലക്ഷത്തോട് അടുക്കുന്നു

മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മോസ്കോയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറി ബോറിസോവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത് കരാറുകൾ തുടരുക മാത്രമല്ല തുടർ നടപടികൾ കാലതാമസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് റഷ്യ അറിയിച്ചതായും ശ്രീ രാജ്നാഥ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു

റഷ്യ ഇന്ത്യ ചൈന വിദേശകാരൃ മന്ത്രിതല ചർച്ചയിൽ റഷ്യൻ വിദേശകാരൃ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്

വോയ്സ് ഐക്യരാഷ്ട്രസഭ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്ഥം നേടാനും സമിതിയിലെ ശക്തമായ അംഗമായി മാറാനും ഇന്തൃയ്ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജേയ് ലവ്റോവ് വ്യകതമാക്കി

വരുന്ന രണ്ട് വർഷ കാലാവധിയിലേക്കുള്ള് ്താത്കാലിക അംഗമായി കഴിഞ്ഞ ദിവസം ഇന്ത്യയെ തെരഞ്ഞെടുത്തിരുന്നു

അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുകയും പങ്കാളികളുട്ട് നീതിപൂർവ്വമായ അവകാശങ്ങൾ അംഗീകരിക്കുകയുമാണ് സു്സ്പ്റ്റിര ലോകക്രമം കെട്ടിപ്പെടുക്കാനുള്ള മാർഗ്ഗമെന്നും റഷ്യ ഇന്ത്യൂ ബ്ബെന വിദേശകാര്യ മന്ത്രിതല ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കി

ജയശങ്കറാണ് ചൈനയ്ക്കെതിരെ ഇത്തരത്തിൽ പരോക്ഷ വിമർശനവുമായി രംഗത്തു വന്നത് അന്താരാഷ്ട്ര വിഷയങ്ങൾ സമകാലിക യാഥാർത്ഥ്യത്തിന്റെ രൂപപ്പെടണമെന്നും ഡോ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്തിടെ പാകിസ്ഥാനിലെ ഇന്തൃൻ ഹൈകമ്മീഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരെ കടത്തിക്കൊണ്ട് പോയ കാര്യവും ഉദാഹരമണമായി വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു

സൂററ്റ് പൊലീസ് കമ്മീഷണറുമായി താൻ സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ട് ബാങ്ക് സന്ദർശിച്ച് ജീവനക്കാർക്ക് സുരക്ഷ ഉദ്യപ്പ് നൽകുമെന്നും ധനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

മികച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ധനസഹായത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര പ്പിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു

കേന്ദ്ര വിദേശകാര്യ ്സഹമന്ത്രി വി മുരളീധരൻ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി

ചൌധരി എന്നിവർ ചേർന്ന് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു